വരുന്ന രണ്ടു സുപ്രധാന ബില്ലുകൾ ലോക്സഭ പാസാക്കി ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നിർമ്മിച്ച ബിഹാറിലെ ക്യോസി റെയിൽ മഹാസേതു പ്രധാനമന്ത്രി നരേന്ദ്ര്മോദി ഇന്ന് രാഷ്ട്രത്തിനു സമർപ്പിക്കും

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് രാജി അംഗീകരിച്ചു

എല്ലാ പ്രശ്നങ്ങളെയും ലോകസമാധാനവുമായി കൂട്ടികെട്ടുന്നത് നിരർത്ഥകമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ

കാർഷികോത്പന്ന വ്യാപാര പ്രോത്സാഹന ബില്ലും കാർഷിക വിലസ്ഥിരത ബില്ലുമാണ് ശബ്ദവോട്ടോടെ പാസാക്കിയത് കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ക്ട്ർഷക സമ്പദ്വ്യവസ്ഥ ശക്തിപ്പെടുത്താനുമുള്ള സുപ്പിട്ടുന്ന് പരിഷ്കാരങ്ങളാണ് ബില്ലുകളിലുള്ളതെന്ന് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞൂ സ്പാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാർഷികോത്പന്നങ്ങളുടെ താങ്ങുവില ഒന്നര ശതമാനം വരെ വ്റ്റ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കാർഷികോത്പന്ന വിൽപ്പന രംഗത്ത് ലൈസൻസ് രാജ് അവസാനിപ്പിക്കാനുള്ള ചരിത്രപരമായ നിയമനിർമ്മാണമാണിതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കോൺഗ്രസ് ആർ

പി തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ ഇറങ്ങിപ്പോയി

ആർ

ഡി

യു ശിവസേന എന്നീ കക്ഷികൾ ബില്ലിനെ പിന്തുണച്ചു ശിരോമണി അഗാലിദൾ അംഗം സുഖ്ബീർ സിംഗ് ബാദലും ബില്ലുകളെ ശക്തമായി എതിർത്തു

കാർഷിക രംഗത്തെ ഇടനിലക്കാരിൽ നിന്ന് മുക്തമാക്കി കർഷകരെ സ്വതന്ത്രരാക്കുന്ന ബില്ലുകളാണ് പാസാക്കിയത് കാർഷികോത്പന്നങ്ങൾ മികച്ച വിലയ്ക്ക് വില്ക്കാനും പരമാവധി ലാഭം നേടാനും കാർഷിക നിയമപരിഷ്ക്കരണം വഴിയൊരുക്കും കാർഷികോത്പന്നങ്ങളുടെ താങ്ങുവില സംവിധാനവും സംഭരണവും മുമ്പുള്ളതുപോലെ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു

വിശദാംശങ്ങളുമായി ജയലക്ഷ്മി

കൊൽക്കത്ത ഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിലേക്കുള്ള ദൂരം കുറയ്ക്കാനും ഇതു സഹായിക്കും

മിഥില കോസി പ്രദേശങ്ങളെയാണ് പാലം ബന്ധിപ്പിക്കുന്നത്

സുപോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഡെമു ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാശ്ച് ഓഫ് ചെയ്യും ന്യൂസ്ഡസ്ക് ആകാശവാണി

കാർഷിക പരിഷ്ക്കരണ ബില്ലിൽ പ്രതിഷേധിച്ചാണ് കേന്ദ്രഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി രാജി വച്ചത് ശിരോമണി അഗാലിദളിന്റെ പ്രിതിനിധിയാണ് ഹർസിമ്രത് ബാദൽ രാജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചു

അപേക്ഷകൾ ഇ

കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് ഗാംഗ്വാർ അദ്ധ്യക്ഷനായുള്ള ഇ

പരിസ്ഥിതി പ്രശ്നങ്ങൾ ശരിയായ നിലയിൽ പരിഹരിക്കപ്പെടാൻ ഇത് സഹായകരമാകില്ല പരിസ്ഥിതി നാശത്തെ കുറിച്ചുള്ള യു എൻ രക്ഷാസമിതിയുടെ ഉന്നതതല സംവാദത്തിലാണ് ഇന്ത്യ നിലപാട് അറിയിച്ചത്

സംസ്ഥാനത്തെ സ്ഥിതി ആശങ്കാജനകമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് അദ്ദേഹം ഇന്നലെ കശ്മീരിലെത്തിയത്

സൈനികരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തി പര്യടനം പൂർത്തിയാക്കി അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് മടങ്ങും

പോഷൺ അഭിയാന്റെ ഭാഗമായുള്ള നടപടി കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ സഹായകമാകും

കരാറുകാരൻ അതോറിറ്റി എൻജിനിയർ സേഫ്റ്റി ്കൺസൾട്ടന്റ് ഡിസൈൻ കൺസൾട്ടന്റ് ഐഐടി ചെന്നൈ എന്നിവർക്ക് കാരണംകാണിക്കൽ നോട്ടീസ് നല്കി എൻഐടി കോഴിക്കോടും നാല് വിദഗ്ധരടങ്ങുന്ന സമിതിയുമാണ് സംഭവം അന്വേഷിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു

ഹൈക്ക്ട്രിടതിയെ സമീപിക്കുമെന്ന് ഷൂരി പ്രതികരിച്ചു

ഇന്ന് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു